ദേശീയ വിദ്യാഭ്യാസ നയത്തിന് കേന്ദ്രമന്ത്രിസഭയുടെ ന് അംഗീകാരം വിദ്യാഭ്യാസ രംഗത്ത് സമൂല പരിഷ്കരണങ്ങൾ ലക്ഷ്യമിടുന്നതാണ് പുതിയ നയം

വിശദാംശങ്ങളുമായി കരോൾ അബ്രഹ്മാം

വ്യോമാതിർത്തി കടന്ന റഫാലിലേക്ക് നാവികസേനയുടെ യുദ്ധകപ്പലായ ഐഎൻഎസ്കൊൽക്കത്തയിൽ നിന്നും സ്വാഗത സന്ദേശം കൈമാറി

ഇന്ത്യൻ വ്യോമസേനയുടെ പ്രഹരശേഷി വർദ്ധിപ്പിക്കാൻ ഈ വിവിധോദ്ദേശ പോർവിമാനങ്ങൾക്ക് കഴിയുമെന്ന് അദ്ദേഹം ടിറ്ററിൽ കുറിച്ചു

മൂന്ന് സിംഗിൾ സീറ്റർ വിമാനങ്ങളും രണ്ട് ഡബിൾ സീറ്റർ വിമാനങ്ങളുമാണ് ഇന്ന് രാജ്യത്തെത്തിയത് ഫ്രഞ്ച് വ്യോമയാന കമ്പനിയായ ദസ്സോ നിർമ്മിച്ച യുദ്ധവിമാനങ്ങൾ തെക്കൻ ഫ്രാൻസിലെ മെറിഗ്നാക് എയർ ബേസിൽ നിന്ന് തിങ്കളാഴ്ച യാണ് യാത്ര തിരിച്ചത്

എ ഇ ൽ മാത്രമാണ് വിമാനം ഇറങ്ങിയത്

രാജ്യരക്ഷ പോലെ മഹത്തരമായി മറ്റൊന്നുമില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ചരിത്ര ദിനമാണെന്നും അഭിമാന മുഹൂർത്തം ആണിതെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ പറഞ്ഞു

രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ സമൂല മാറ്റത്തിനു ലക്ഷ്യമിടുന്ന പുതിയ വിദ്യാഭ്യാസ നയത്തിൽ കാതലായ നിരവധി പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുണ്ട്

ഇതിനുപുറമേ പ്രോഗ്രസ്സ് കാർഡുകളിൽ മാർക്കുകൾ രേഖപ്പെടുത്തുന്നതിന് പകരം അവരുടെ കഴിവുകളും ശേഷികളും ഉൾപെടുത്തിയുള്ള സമഗ്ര റിപ്പോർട്ട് ആകും രേഖപ്പെടുത്തുക

ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യത്തെ വനം പരിസ്ഥിതി ഉദ്യോഗസ്ഥർക്ക് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവദേക്കർ അഭിവാദ്യം അർപ്പിച്ചു

ഭൌമശാസ്ത്രവുമായി ബന്ധപ്പെട്ട സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരത്തിന് പ്രൊഫസർ അശോക് സാഹ്നി അർഹനായി സമുദ്ര ശാസ്ത്ര സാങ്കേതിക വിദൃയ്ക്കുള്ള പുരസ്കാരം ഡോ

അന്തരീക്ഷ ശാസ്ത്ര സാങ്കേതിക വിദ്യയ്ക്കുള്ള അവാർഡ് ഡോ

റ്റി ഷിപ്പിംഗ് സംവിധാനത്തിലൂടെ രാസവളം കയറ്റി അയക്കാൻ ആരംഭിക്കുന്നു

ആയിരത്തോളം തീർഥാടകർ മാത്രമാണ് ചടങ്ങിൽ പങ്കെടുക്കാനായി വിശുദ്ധ നഗരമായ മക്കയിൽ നിന്ന് യാത്ര ആരംഭിച്ചത്

ഇന്ന് മിനായിൽ ചെലവഴിക്കുന്ന ഇവർ നാളെ പുലർച്ചെ ഹജ്ജിന്റെ മുഖ്യ ചടങ്ങായ അറഫാ സംഗമത്തിനായി നീങ്ങും

കീഴിലുള്ള ഉപകമ്പനികളുടെയും പ പ്പസ്ംയുക്ത സംരംഭങ്ങളുടെയും ഉത്പാദനം ഉൾപ്പെടെയ്ടാണിത്

മുറിവേൽക്കുന്ന സിംഹം അടക്കമുള്ള വനൃജീവികൾക്ക് വേഗത്തിലുള്ള ചികിത്സ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് ആംബുലൻസ് സംസ്ഥാന ഭരണകൂടം സൌകര്യം ഏർപ്പാടാക്കിയിരിക്കുന്നത്

ഇ കിറ്റ് മാസ്ക് എന്നിവ സംബന്ധിച്ച കയറ്റുമതി നയത്തിൽ കേന്ദ്രസർക്കാർ ഭേദഗതി വരുത്തി ഇതനുസരിച്ച് സർജിക്കൽ മാസ്കുകൾ മെഡിക്കൽ ഗ്ലാസ്സ് ഉപകരണങ്ങൾ എന്നിവ നിയന്ത്രണങ്ങളോടെ കയറ്റുമതി ചെയ്യുന്നതിന് അനുമതി ഭൂൽകി രണ്ടും മൂന്നും പാളികളുള്ള മാസ്കുകളുടെ പൃതിമാസ കയറ്റുമതി പരിധി നാല് കോടിയായി നിജപ്പെടുത്തി